പ്രധാനമന്ത്രിയുമായുള്ള വെർച്ചൽ കൂടിക്കാഴ്ച ഇന്ന്

നിലവിൽ വരും വിജയികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

ജീവിതശൈലീ രോഗ്ലിങ്ങൾ തടയാൻ യോഗയും ന് പരമ്പരാഗത ഭക്ഷണവും ശീലമാക്കണമെന്ന് ഉപരാഷ്ട്രപതി

വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്രം

ലേക്ക്

എസ് എൽ ഫൂട്ബോളിൽ ഇന്ന് എ

സി യുമായി ഏറ്റുമുട്ടും

ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ആശയ വിനിമയം നടത്തും

വെങ്കയ്യ നായിഡു ആവശ്യപ്പെട്ടു ഹൈദരാബാദിലെ ഹൃദ്രോഗ വിദഗ്ദ്ധരുടെ സംഘടന ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനു ക്രമരഹിത ജീവിതശൈലിയാണ് പ്രധാന കാരണമെന്ന് ശാസ്ത്ര സമൂഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു യോഗ പിരിമുറുക്കം ഒഴിവാക്കുകയും രോഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യും യോഗ ദിനചരൃയുടെ ഭാഗമാക്കണം

വാക്സിൻ സുരക്ഷിതമായിരിക്കുമെങ്കിലും ചെറിയ തോതിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം

പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ തോതിൽ വാക്സിൻ വിതരണം നടത്തുമ്പോൾ ഇർത്തരം നടപടികൾ ആവശ്യമാണ്

തീയതി കർഷകർക്ക് നിശ്ചയിക്കാം കാർഷിക നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്നവർ സർക്കാരുമായി അടുത്ത ഘട്ട ചർച്ചകൾക്ക് അവസരമൊരുക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു പ്രശ്നം പരിഹരിക്കാൻ വീണ്ടും ചർച്ച നടത്തണമെന്ന് കൃഷി മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാൾ കർഷക സംഘടനകൾക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു നിയമങ്ങളിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ നിർദ്ദേശം കർഷക നേതാക്കൾ നിരസിക്കുകയും യോഗത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്തതിനെ തുടർന്ന് കർഷകരും സർക്കാരും തമ്മിലുള്ള ആറാം വട്ട ചർച്ച റദ്ദാക്കിയിരുന്നു

ഹിന്ദ് മസ്ദൂർ കിസാൻ സമിതിയുടെ പ്രതിനിധി സംഘം കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമറിനെ സന്ദർശിച്ചാണ് പിന്തുണ അറിയിച്ചത്

സിംഗ് കാർഷിക നിയമങ്ങളെക്കുറിച്ച് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ കർഷകരുമായി സംസാരിക്കവേയാണ് അദ്ദേഹം ഇതു പറഞ്ഞത്

കർഷക ക്ഷേമം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ

കെ സിംഗ് പറഞ്ഞു

ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് ക്വർണറോട് ഇക്കാരൃം ശുപാർശ ചെയ്യും ഒരു മണിക്കൂർ ്മാത്ര്മാകും സഭാ സമ്മേളനം മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കും ്സ്പീക്കറും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും സംസാരിക്കും

കോർപറേഷനുകളിൽ കളക്ടർമാരും മുനിസിപ്പാലിറ്റികളിൽ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള വരണാധികാരികളും സത്യവാചകം ചൊല്ലിക്കൊടുക്കും

കോവിഡ് പോസിറ്റീവായവരും കാറന്റൈനിലുള്ളവരും പി

ഇ കിറ്റ് ധരിച്ചാണെത്തുക

വാക്സിൻ വിതരണം തുടങ്ങിയതോടെ മഹാമാരിയിൽ നിന്നും മുക്തി നേടാമെന്ന രാജൃത്തിന്റെ പ്രതീക്ഷയ്ക്കാണ് ഇത് മങ്ങലേൽപിക്കുന്നത്

സ്ഥിതി ഗുരുതരമായേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ബ്രിട്ടണിൽ അതീവജാഗ്രത പാലിക്കുകയാണ് എന്നാൽ കോവിഡ് വാക്സിൻ വിതരണത്തെ ഇത് ബാധിച്ചിട്ടില്ല

ആകെ ഏഴ് കോടിയിലധികം പേർക്ക് കോവിഡ് ബാധിച്ചപ്പോൾ അഞ്ചരക്കോടി പേർ രോഗമുക്തി നേടി

ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ അമേരിക്കയിലാണ്

കെ മോഹൻ ബഗാൻ ബംഗളുരു എഫ്

ഇന്നലെ നട്ട്ണ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈസ്റ്റ് ബംഗാളിന്റെതിരെ സമനില ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിന്റെതീരെ മുംബൈയ്ക്ക് ജയം

കളരിപ്പയറ്റിനു പുറമേ ഗട്ട്ക തങ് താ മല്ലഖമ്പ എന്നിങ്ങനെ നാല് ആയോധന കലകളാണ് പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ രാജ്യത്ത് കായികപരമായി സമ്പന്നമായ പാരമ്പരൃമാണ് നിലനിൽക്കുന്നത് ഈ കായിക വിനോദങ്ങളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പി ക്കുകയും ജനപ്രിയമാക്കുകയുമെന്നത് കായിക മന്ത്രാലയത്തിന്റെ മുൻഗണനകളിൽ ഒന്നാമതാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തീരുമാനം വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു